ബജറ്റിനു മുന്നോടിയായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കാർഷിക ഗ്രാമീണ മേഖലകളിലെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും തുടച്ച് മാറ്റാൻ നടപടി വേണമെന്ന് കേന്ദ്രമന്ത്രി

ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ അഞ്ച് കോടി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്പി

ലോകകപ്പ് ക്രിക്കറ്റ് ഇന്ത്യൻതാരം ശിഖർ ധവാന് പരുക്ക് അടുത്ത ര ് മത്സരങ്ങളിൽ കളിക്കാനാവില്ല

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണു വോയിസ് കാർഷിക മേഖലയ്ക്ക് ഇൌ ഗവൺമെന്റ് വലിയ പ്രാധാനൃമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു സ്റ്റാർട്ടപ്പുകൾ മുന്നോട്ട് വയ്ക്കുന്ന നൂതനമാർഗ്ഗങ്ങളിലൂടെ കൃഷിക്കും കാർഷികവിപണിക്കും കൂടുതൽ നേട്ടങ്ങൾ ഉ ാക്കാൻ സാധിക്കണമെന്നും കേന്ദ്രധനമന്ത്രി പറഞ്ഞു ഗ്രാമീണ വികസനം ഹോർട്ടികൾച്ചർ മൃഗസംരക്ഷണം മത്സ്യബന്ധനം കാർഷിക മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയെക്കുറിച്ചും യോഗത്തിൽ ചർച്ച നടന്നു

ഭക്ഷ്യസംസ്കരണ രംഗത്ത് കൂടുതൽ പുതിയ സാങ്കേതിക വിദൃകൾ കൊ ു വരണമെന്നും അവർ ആവശൃപ്പെട്ടു കേന്ദ്ര ധനകാര്യവകുപ്പ് സഹമന്ത്രി അനുരാഗ് താക്കൂറും യോഗത്തിൽ പങ്കെടുത്തു അടുത്തമാസം അഞ്ചിനാണ് ബജറ്റ് അവതരണം

ഗവൺമെന്റിന്റെ മികച്ച പ്രവർത്തനത്തിന് പദ്ധതികളും രൂപരേഖയും തയ്യാറാക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും ഇന്നലെ കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളിലെ സെക്രട്ടറിമാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള പ്രപദ്ധതികളെക്കുറിച്ച് വിശദമായി ആസൂത്രണം ചെയ്യാൻ അദ്ദേഹൃം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു കേന്ദ്ര ക്യാബിനറ്റ് യോഗത്തിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി എല്ലാ മന്ത്രിമാരേയും കാണുക

കൂടാതെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്ക് അദ്ദേഹം സത്യവാചകം ചൊല്ലിക്കൊടുക്കും ലോക്സഭ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പും അദ്ദേഹം നിയന്ത്രിക്കും ഇത് ഏഴാംതവണയാണ് ശ്രീ വിരേന്ദ്രകുമാർ പാർലമെന്റ് അംഗമാകുന്നത്

ഇതിന്റെ ഫലമായിഗുജറാത്തിന്റെ തീരദേശജില്ലകളിൽ കനത്ത മഴയും ഉ ാകും

ചുഴലിക്കാറ്റ് ബാധിക്കാനിടയുള്ള ് പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിതസ്ഥാനങ്ങളില്ലേക്ക് മാറ്റുന്നതിനും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സാധ്യമായ എല്ലാ നടപടികളും കൈക്കൊളളണമെന്ന് ശ്രീ അമിത്ഷാമുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി

രാജീവ് ഗൌബ ഭൌമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറിഡോ

രാജീവൻ ആഭ്യന്തരമന്ത്രാലയത്തിലെയും കാലാവസ്ഥാവകുപ്പിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു

കര നാവിക വ്യോമസേന വിഭാഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിമാനത്തിനായുള്ള തെരച്ചിൽ ഊർജ്ജിതമാക്കിയിരുന്നു എന്നാൽ മോശം കാലാവസ്ഥ തിരച്ചിലിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു

ഇവരിൽ മൂന്ന് പേർ മലയാളികളാണ് ഇവർക്ക് വേ ിയുള്ള തിരച്ചിൽ തുടരുകയാണ്

ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾ സ്കൂളുകളിൽ നിന്ന് കൊഴിഞ്ഞുപോകാതിരിക്കാൻ ബോധവത്ക്കരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു വിശദാംശങ്ങളുമായി കൃഷ്ണ വോയിസ് പ്രീമെട്രിക് പോസ്റ്റ്മെട്രിക് മെറിറ്റ് കം മീൻസ് എന്നി വിഭാഗങ്ങളിലായിരിക്കും വിഭാഗങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുകയെന്ന് കേന്ദ്ര മന്ത്രി മുക്താർ അബ്ബാസ് നഖ്പി അറിയിച്ചു ന്യൂഡൽഹിയിൽ മൌലാനാ ആസാദ് എജ്യുക്കേഷൻ ഫൌ ഷന്റെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വികസനത്തിനും വളർച്ചക്കും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

കേന്ദ്രമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് കൂടാതെ സാഗർമാല പദ്ധതിക്കും സംസ്ഥാനത്തിന് അർഹമായ പരിഗണന നൽകും ഫിഷറീസ് മന്ത്രാലയം രൂപീകരിച്ചത് കേരളത്തിന് കൂടുതൽ സഹായകരമാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞതായി മുഖ്യമന്ത്രി അറിയിച്ചു രാവിലെ കേരളത്തിലെത്തിയ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സംസ്ഥാന നിയമസഭ സന്ദർശിച്ചു സ്പീക്കറും സമാജികരും ഊഷ്മളമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് നൽകിയത്

സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ സംഘടനയുമായി ഇന്ന് ഭക്ഷ്യമന്ത്രി നട ത്തിയ ചർച്ചയെ തുടർന്നാണ് പദ്ധതിയുമായി സഹകരിക്കാമെന്ന് റേഷൻ വ്യാപാരികൾ അറിയിച്ചത്

കർണ്ണാടകയിൽ നിരവധി നിക്ഷേപകരെ വഞ്ചിച്ച ബാംഗ്ലൂർ സ്വദേശിയായ മുഹമ്മദ് മൻസൂർ ഖാനെ ഇന്നലെ മുതൽ കാണാതാകുകയായിരുന്നു രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുളള പ്രമുഖരായ പല വ്യക്തികളും തന്നെ വഞ്ചിച്ചുവെന്നും അതിനാൽ താൻ ആത്മഹത്യ ചെയ്യുകയാണെന്നും സൂചിപ്പിച്ചുകൊ ുളള സംഭാഷണ ടേപ്പ് പുറത്തിറക്കിയ ശേഷമാണ് ഇയാളെ കാണാതായത്

മൻസൂർ ഖാനും കൂട്ടാളികൾക്കുമെതിരെ കർണ്ണാടക പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടു ്

ന്യൂസിലന്റിനെതിരെ വ്യാഴാഴ്ചയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാക് മത്സരം ഞായറാഴ്ച നടക്കും